ഊർജ്ജിതം

മഴവെള്ള സംഭരണത്തിനായുള്ള ജൂൽശക്തി അഭിയാന് പ്രധാനമന്ത്രി നാളെ തുടക്കം കൂറിക്കും

മികച്ചു പ്രോത്സാഹനമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

നാലര കോടിയായി കോവിഡ് മുക്തിയിലും വർധന

പൂനെയിൽ തുടക്കം

ലോക കപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ടു സ്വർണം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു ബങ്കുറ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ജില്ലയിലെ എൻ

ഈസ്റ്റ് മെദ്നിപുരിൽ സംഘടിപ്പിച്ച റാലിയെ കേന്ദ്ര മന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു

ജെ

തൃണമൂൽ കോൺഗ്രസ്സ് പ്രസിഡന്റൂട്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുമായ മമതബാനർജി മൂന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു അസമിൽ ബി ജെ പി പ്രകട്ടന് പത്രിക പാർട്ടി ദേശീയ അദ്ധ്യക്ഷൻ ജെ

മൂന്നു മുന്നണികളും പ്രചാരണം ഊർജ്ജിതമാക്കി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രചാരണരംഗത്തുണ്ട് കേന്ദ്ര നൽകുന്ന കേന്ദ്രം പദ്ധതികളും പണവും കേരളത്തിന്റെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ബിജെപി നേതാവും കേന്ദ്ര മന്ത്രിയുമായ അനുരാഗ് താക്കൂർ ആരോപിച്ചു

താക്കൂർ പറഞ്ഞു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി യു ഡി

ഡി എഫിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ജില്ലകളിൽ പ്രചാരണം നടത്തുന്നു

അസ്സമിലെ ബോകാഘട്ടിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുക യായിരുന്നു അദ്ദേഹം എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരുടെയും വികസനം എന്ന തത്വത്തിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്

തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് എതിർ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നശേഷം കോടതി ഇടപെടുന്നതിൽ തടസ്സമുണ്ടെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചു

വിശദാംശങ്ങളുമായി നന്ദകുമാർ വോയിസ് നദീജല സംയോജനവുമിട്ട്യി ബന്ധപ്പെട്ട കെൻ ബെത്വാ ലിങ്ക് പദ്ധതിയുടെ നടത്തിപ്പിന്നാ്യുള്ള ധാരണാ പത്രവും പ്രധാന മന്ത്രിയുടെ സാന്നിധൃത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഒപ്പു വയ്ക്കും

നദീജല സംയോജനവുമായി ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ ആദ്യത്തെ പദ്ധതിയാണിത്

മഴവെള്ള സംഭരണം സമൂഹത്തിന്റെ അടിസ്ഥാനതലം വരെ ജനപങ്കാളിത്തമുള്ള ജനകീയ പ്രസ്ഥാനമായി മാറ്റുകയാണ് ലക്ഷ്യം മഴവെള്ളം ശേഖരിച്ച് നിർത്തി ഏതു കാലഘട്ടത്തിലും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ എല്ലാ വിഭാഗക്കാരിലും എത്തിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു മഴവെള്ളം സംഭരിച്ച് അനുയോജ്യമായ രീതിയിൽ വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ നിർദ്ദേശിച്ചിരുന്നു

ഒഡീഷ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് റൂർക്കേല എൻഐടിയുടെ പതിനെട്ടാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയാ യിരുന്നു അദ്ദേഹം

നിരാശരായ പ്രവാസികൾക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന തീരുമാനമായിരുന്നെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് പുരി പറഞ്ഞു

ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ് നൽകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മുന്നിലാണ്

മഹാരാഷ്ട്ര പഞ്ചാബ് കർണ്ണാടക ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് സ്ഥിതി ഗുരുതരം

ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ആശംസകൾട്ട്ടിൽറിയിച്ചു വനപുനഃസ്ഥാപനം വീണ്ടെടുക്കുലിലേക്കും സൌഖൃത്തിലേക്കുമുള്ള പാത എന്നതാണ് ഇക്കൊല്ലത്ത് വ്നം ദിനാചരണത്തിന്റെ പ്രമേയം